ആഘോഷിക്കുന്നു ഗ്രാമങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളിലെ ജന്മസിദ്ധമായ കഴിവുകളെ പുറത്തുകൊണ്ടുവരുന്നതിൽ അധ്യാപകർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് പ്രധ്ാന്റ്മിന്ത്രി നരേന്ദ്രമോദി

ടി യുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ന് വൃവസായങ്ങൾക്ക് നികുതി റിട്ടേൺ അപേക്ഷ നൽകുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രാലയം വിജ്ഞാപനമിറക്കി

ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും

ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സമർപ്പിക്കും ഗ്രാമങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളിലെ ജന്മസിദ്ധമായ കഴിവുകളെ പുറത്തുകൊണ്ടുവരുന്നതിൽ അധ്യാപക്ർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് പ്രധാനമന്ത്രി നര്യ്ന്ട്മോദി ആഹ്വാനം ചെയ്തു ദേശീയ അധ്യാപക പുരസ്കാര ജേത്റക്കളുമായി ഔദ്യോഗിക വസതിയിൽ നടത്തിയ ചർച്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത് പുരസ്കാര ജേത്റക്ക്ളെ പ്രശംസിച്ച പ്രധാനമന്ത്രി അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള അകലം കുറയ്ക്കുവാൻ അധ്യാപ്പകർ ശ്രമിക്കണമെന്നും പറഞ്ഞു തുടർന്ന് വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ കൈക്കൊണ്ട നടപടികളെക്കുറിച്ച് പുരസ്കാര ജേതാക്കൾ സംസാരിച്ചു

അധ്യാപനത്തിന്റെ മഹത്വം പുതുതലമുറയ്ക്ക് പകർന്ന് നൽകുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുമാണ് ദിനാചരണം

രാജ്യത്തെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ ശുചിത്വത്തിന് മുൻതൂക്കം നൽകുന്നതിന് പ്രചോദനമായാണ് സ്ക്ക് പ്പിദ്യാലയ പുരസ്കാരം നൽകുന്നത്

ബൽഗേരിയയിലെ സോഫിയയിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വംശജരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് ദിവസത്തെ സൈപ്രസ് സന്ദർശന് ശേഷം ഇന്നലെ വൈകുന്നേരമാണ് രാഷ്ട്രപതി സോഫിയയിൽ എത്തിയത് വ്യാപാരത്തിനും നിക്ഷേപത്തിനും ഇന്ത്യയിൽ ഏറെ സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞ രാഷ്ട്രപതി ജനുവരിയിൽ നടക്കുന്ന പ്രവാസി ഭാരതി ദിവസിൽ പങ്കെടുക്കാൻ ബൾഗേരിയയിലെ ഇന്ത്യൻ വംശജരെ ക്ഷണിക്കുകയും ചെയ്തു

ടി യുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യവസായങ്ങൾക്ക് നികുതി റിട്ടേൺ അപേക്ഷ നൽകുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രാലയം വിജ്ഞാപനമിറക്കി

സി ആനുകൂല്യങ്ങൾ എന്നിവ സമർപ്പിക്കണം സാധാരണ നികുതിദായകരുടെ വാർഷിക നികുതി റിട്ടേണുകളും സമർപ്പിക്കേണ്ടതാണ്

മുഖ്യമന്ത്രിയുടെ ദുരിതാൾപ്പാസ നിധിയിലേക്ക് ജില്ലയിൽ നിന്നുള്ള ധനസമാഹരണവുമയി ബന്ധപ്പെട്ട് ഇടുക്കി കളക്ട്രേറ്റിൽ ചേർന്ന ആലോചനായോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹൂർ അർഹരായ മുഴുവൻ ആളുകൾക്കും ദുരിതാൾപ്പാസ് സഹായം എത്തിക്കാൻ ഗവൺമെന്റ സംവിധാനം കാര്യക്ഷ്മത്ര്യോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി ജില്ലയിലെ ്തകർന്ന റോഡുകളും കാർഷിക മേഖലയും പുനരുദ്ധരിക്കുന്നതിന് കർമ്മപദ്ധതികൾ നടപ്പിലാക്കും

മറ്റ് വിഷയങ്ങളിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു

ജി

ഇതിന് ധൈര്യവും നിശ്ചയദാർഢ്യവും ഏറെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു പൊലീസുകാരുടെ മനോവീര്യത്തെ കെടുത്തുന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോട്ടുകൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു സംസ്ഥാന പൊലീസിന്റെ പ്രകടനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയത്തിന് സംത്യപ്തിയില്ലെന്നും ഡോ വെയ്ദിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുമുള്ള ടി വി ന്യൂസ് ചാനൽ റിപ്പോട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന പൊലീസിന്റെ പ്രകടനത്തിൽ ഒന്നിലേറെ തവണ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ടെന്ന് ഊഹാപോഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയവും വ്യക്തമാക്കി

തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാളി പളനിസ്വാമി ആദ്യ ഷ്യതിപ്പ് ഏറ്റുവാങ്ങി

ചെന്നൈയിൽ നിരവധി പ്രഥമ അഭ്ധ്യാപകരും പണ്ഡിതരും പങ്കെടുത്ത ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു് അദ്ദേഹം വിദ്യാർത്ഥികളെക്കുറിച്ച് കരുതലുള്ള ഒരു പ്രധാനുമന്ത്രിയാണ് നമുക്കുള്ളതെന്നും ഗവർണ്ണർ പറഞ്ഞു

ചരക്കുകളും സേവനങ്ങളും സംബന്ധിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കൂടുതൽ ചർച്ചകൾ ആവശ്യമുള്ളതിനാലാണ് ഇത് സിംഗപ്പൂരിൽ നടന്ന സമ്മേളനത്തിൽ ഇന്ത്യ പ്രധാനമായും മൂന്നു വിഷയങ്ങളാണ് ഉന്നയിച്ചിരുന്നത്

സി ഇ

എന്നാൽ ജപ്പാനും ഏഷ്യൻ രാജ്യങ്ങളുമുൾപ്പെടെ മറ്റെല്ലാ അംഗങ്ങളുമായും ഇന്ത്യയ്ക്ക് വ്യാപാര ഉടമ്പടിയുണ്ടെന്നും ശ്രീ സുരേഷ് പ്രഭു വ്യക്തമാക്കി

വികസിത രാഷ്ട്രങ്ങൾ പരിസ്ഥിതിക്ക് വരുത്തിയ നാശത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുകയാണെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി തായ്ലന്റിലെ ബാങ്ക്കോക്കിൽ ആരംഭിച്ച ആറ് ദിവസത്തെ ഐക്യരാഷ്ട്ര സമ്മേളനം പാരിസ് കരാർ നടപ്പാക്കുന്നത്രിന്ടുഒരു നിയമാവലിക്ക് അന്തിമ രൂപം എത്രയും പെട്ടെന്ന് നൃൽക്ക്ണ്മെന്ന അഭ്യർത്ഥനയോടെയാണ് തുടങ്ങിയത് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിന് ഏറ്റവും തീവ്രമായ ആഗ്രഹത്തോടെ തയാറായതാണ് പ്പാരിസ് കരാർ

മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപക്സെയുടെ നേതൃത്വത്തിൽ സംയുക്ത പ്രതിപക്ഷം ഇന്ന് പ്രതിഷേധം സംഘടിപ്പുക്കുന്ന പശ്ചാതലത്തിലാണ് ഇത് പൊതു ജനങ്ങൾക്ക് എന്തെങ്കിലും അസൌകര്യമുണ്ടാക്കിയാൽ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നൂറു കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്